സമ്പദ്ഘടനയ്ക്ക് ശൂക്തി പകരുമെന്ന് രാജ്യത്തെ വ്യാപാരവ്യവസ്മായ് സംഘടനകൾ

പ്രവാസികളുമായി മൂന്നു വിമാനങ്ങൾ ഇന്ന് ഇന്ത്യയിലെത്തും സമുദ്രസേതു പദ്ധതിയുടെ രണ്ടാംഘട്ടം നാളെ മുതൽ

ടിക്കറ്റുകൾ അനുവദിച്ചു തുടങ്ങും

ഹർഷ്വർദ്ധൻ

വിശദാംശങ്ങളുമായി ല്ലിൻസ സിറാജ്

ലോക്ഡൌണിനെ തുടർന്നുണ്ടായ മാന്ദ്യം മാറ്റാൻ ഇതിന് കഴിയും

ഇ കൾക്ക് ഈടില്ലാതെ വായ്പ നല്കാൻ മൂന്നു ലക്ഷം കോടി രൂപ അനുവദിക്കുന്നത് ഈ മേഖലയുടെ ഉന്നമനത്തിനുള്ള മികച്ച നടപടിയാണ് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച ആത്മനിർഭർ ഭാരത് അഭിയാൻ ലക്ഷ്യമാക്കിയാണ് പരീഷ്ക്കരണ നടപടികളെന്നും ശ്രീ

സ്വാശ്രൂയ ഇന്ത്യയ്ക്കായുള്ള സാമ്പത്തിക പാക്കേജിന്റെ തുടൂർ ന്ടപടികൾ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്ന് പ്രിക്ക്കിട്ട് ന്യൂഡൽഹിയിൽ പ്രഖ്യാപിക്കും

സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായങ്ങളുടെ നിർവചനം പരിഷ്ക്കരിച്ചു

ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് ഈടില്ലാതെ മൂന്നു ലക്ഷം കോടി രൂപയുടെ വായ്പലഭൃത ഉറപ്പാക്കും

വായ്പ കിട്ടാക്കടമായി പ്രഖ്യാപിച്ച വ്യവസായങ്ങൾക്കും അർഹതയുണ്ടാകും

ജിദ്ദയിൽ നിന്ന് കൊച്ചിയിലേയ്ക്കും ദുബായിയിൽ നിന്ന് ഭൂവനേശ്വർ ന്യൂഡൽഹി എന്നിവിടങ്ങളിലേയ്ക്കുമാണ് വിമാനങ്ങൾ എത്തുന്നത്

വന്ദേ ഭാരത് പദ്ധതിയുടെ കീഴിൽ ദുബായിയിൽ നിന്ന് ഒഡീഷയിലെത്തുന്ന ആദ്യ വിമാനം കൂടിയാണ് ഇത്

കേരളത്തിൽ എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിൽ സർവ്വേ നടത്തും

എം

പ്രതിരോധമന്ത്രി ആഭ്യന്തരമന്ത്രി ധനമന്ത്രി എന്നിവർ ട്രസ്റ്റിലെ എക്സ്ഓഫിഷ്യോ അംഗങ്ങളാണ്

മെയിൽ എക്സ്പ്രസ് പാസഞ്ചർ സബർബൻ ട്രെയിനുകളാണ് റദ്ദാക്കിയത് ഇനിയൊരു ഉത്തരവു വരെയാണ് തീരുമാനം

പ്രത്യേക ട്രെയിനുകൾക്ക് ഇത് ബാധകം

ഇൌ ട്രെയിനുകൾക്ക് ആർ

രാജ്യത്ത് കൂടുതൽ ട്രെയിൻ സർവ്വീസ് ആരംഭിക്കുമെന്ന് കേന്ദ്രം കഴിഞ്ഞ ദിവസം സൂചന നല്കിയിരുന്നു

ഇന്ത്യയിലെ ശക്തമായ ജനാധിപതൃ വൃവസ്ഥമൂലം ലോകത്തെ വ്യവസായികളെ രാജ്യത്തേക്ക് ആകർഷിക്കുകയാണെന്ന് പ്രശീ

കൃഷിഭവനുകൾ വഴിയാണ് വിതരണം ഇതോടൊപ്പം ഒന്നരലക്ഷം പച്ചക്കറി തൈകളും വിതരണം ചെയ്തു